പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു

രാജ്യത്തെ കോവിഡ് മരണനിരക്കിൽ കുറവ് രേഖപ്പെടുത്തി

കോവിഡ് രോഗികൾ ബ്രസീൽ മെക്സിക്കോ അമേരിക്ക എന്നിവിടങ്ങളിൽ രോഗവ്യാപനം തുടരുന്നു

മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയുടെ സ്വപ്നപദ്ധതിയായിരുന്നു ഇപ്പോൾ പൂർത്തിയായ കോസി റെയിൽ പാലമെന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു

സുപോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ദെമു ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു

ബിഹാറിലെ കോസി റെയിൽ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാരൃം അറിയിച്ചത് ബില്ലിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു

രാജ്യത്തിന്റെ സമ്പത്തും അഭി്യൃദ്ധിയും ഉയർത്താൻ സഹായിക്കുന്നത് കർഷക്ക്രാണ്ണ് അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേന്ദ്ര സർക്കാർ കർഷകരുടെ ശാക്തീകരണത്തിനായി ്നിരന്തരം പ്രയത്നിക്കുന്നത്

എ സർക്കാരിന്റെ കാർഷിക ബിൽ കൃഷിക്കാരുടെ ജീവിതം മാറ്റി മറിക്കുമെന്നും ശ്രീ

അമേരിക്ക ബ്രസീൽ മെക്സിക്കോ എന്നിവിടങ്ങളിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്

പി മാരുടേയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിക്കുന്ന ബിൽ രാജ്യസഭ ഐകക ണ്ഠേന പാസ്സാക്കി

ഈ വർഷം ഏപ്രിൽ മുതൽ ഒരു വർഷത്തേയ്ക്കാണ് ബിൽ പ്രാബല്യത്തിലുണ്ടാകുക

രാജ്യത്തെ വൈദ്യശാസ്ത്രശ്രാ്പ്പകളിൽ നിലവാരം ഉറപ്പാക്കാൻ ഗുണപരമായ മാറ്റങ്ങൾ ട്രൂക്ടാണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബില്ലുകളുട്ടെ ചർച്ചക്കിടെ ആരോഗ്യമന്ത്രി ഡോ

പുരാതന വൈദ്യശാസ്ത്ര രീതികളായ്ക് ഹോ്മിയോപ്പതി യോഗ പ്രകൃതിചികിത്സ എന്നിവയുടെട്ട് ഫലം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്യാണ്ണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു

കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നികുതി റിട്ടേണുകളെ സംബന്ധിച്ച നിരവധി ഇളവുകൾ ബില്ലിൽ പരാമർശിക്കുന്നുണ്ട്

ബിൽ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ ജിഎസ്ടി വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു

വിദേശ നിക്ഷേപം ഉയർത്താനും വരുമാന വർധന തൊഴിൽ ലഭ്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഭേദഗതി കാരണമാകുമെന്ന് കേന്ദ്ര മന്ത്രി പിയുഷ് ഗോയൽ അറിയിച്ചു ആത്മ നിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ പുതിയ ഭേദഗതികൾ പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ സഹായിക്കുമെന്നും ശ്രീ

കഴിഞ്ഞ ആറു വർഷത്തിനിടെ റെയിൽവേയിൽ അന്നുപ്പിട്ടീച്ച തസ്തികകൾ റദ്ദാക്കിയിട്ടില്ലെന്നും റെയിൽവേ മന്ത്രി ്പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ രേഖാമൂലം നൽക്കീയി മറുപടിയിൽ അറിയിച്ചു

റഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവെച്ചത്

ബിജെഫ്ലി മുഖപത്രമായ കമൽ സന്ദേശിന്റെ പുതിയ പതിപ്പ് പുറത്തിറ്റക്കുകയായിരുന്നു അദ്ദേഹം